കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് വൈകാതെ ആരംഭിക്കും

ൾ ൽ ൾ ഗുരുതരമായ കാലവർഷക്കെടുതി നേരിടുന്ന കേരളത്തിന് ആവ ശ്യമായ എല്ലാ സഹായവും നൽകാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പ് നൽകി മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസ്ഥാനത്തെ സാഹചരൃം ആരാഞ്ഞ ശേഷമാ യിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം സംസ്ഥാനത്തെ സ്ഥിതി ഗതികൾ പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു രക്ഷാപ്ര വർത്തനത്തിന് സൈന്യത്തെ വേഗത്തിൽ അയച്ചതിന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു കേരളത്തിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കർണാടക മുഖൃമന്ത്രി എച്ച്

രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ബാണാസുര സാഗറിലെ വെള്ളം ഒഴുക്കിവി ടാൻ കബനി നദിയിൽ കർണാടക ഭാഗത്തെ് ഷട്ടറുകൾ കേരളത്തിന്റെ ആവശ്യപ്രകാരം തുറന്നതായും കുമാര്സ്വാമി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു തമിഴ്നാട് അഞ്ചു കോടി രൂപയുടെ സഹായവും കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്

സംസ്ഥാനത്തെ കാലവർഷക്കെടുതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വൈകീട്ട് വിലയിരുത്തി സംസ്ഥാനം ഇതുവരെ നേരിടാത്ത തരത്തിലുണ്ടായ ദുരന്തങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു ണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സേനയും ദുരന്ത നിവാരണ സേനയും പൊലീസ് ഫയർ ഫോഴ്സ് വിഭാഗവും ഫലപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്

മറ്റോരോ സംഘങ്ങൾ മലപ്പുറത്തും കോഴിക്കോട്ടും പ്രവർത്തനം നടത്തും സേനയുടെ മൂന്ന് സംഘങ്ങൾ പാലക്കാട്ടു നിന്ന് ഇടുക്കിയിലേക്ക് പോകും ഒരു സംഘം പാലക്കാട്ട് തുടരും കണ്ണൂരിൽ നിന്ന് കരസേനയുടെ ഒരു സംഘം പെരിയ ചുരം വഴി വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് പോകുന്ന വഴിയിലെ തടസ്സങ്ങൾ നീക്കി യാണ് സേന മുന്നോട്ടു പോകുന്നത് ഇടുക്കി ചെറുതോണി ഡാമിൽ നിന്ന് ഇന്ന് രാവിലെ ഏഴു മുതൽ ഇന്നലത്തേതിന്റെ ഇരട്ടി അളവ് വെള്ളം തുറന്ന് വിടും സെക്കന്റിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളമായിരിക്കും പൂറത്തേക്ക് ഒഴുക്കുന്നത് ഇതി നായി ഒരു ഷട്ടർ കൂടി തുറന്നേക്കും ഇന്നലെ ഉച്ചക്ക് തന്നെ ഇടുക്കി യിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു

കനത്ത മഴയും അണക്കെട്ടിലേക്ക് ശക്തമായ നീരൊഴുക്കും തുരുകയാണ് ചെറുതോണി ഡാമിന് താഴെ പ്രദേശങ്ങളിൽ കഴിയുന്നവരും ചെറു തോണി പെരിയാർ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത് പുലർത്തണമെന്ന് ജില്ലാകലക്ടർ മുന്നറിയിപ്പ് നൽകി കനത്ത മഴയിലും ഉരുൾപ്പൊട്ടലിലും ഇടുക്കി ജില്ലയിലെ റോഡു കൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ റോഡുകളിൽ ഭാരവാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ മലയോരങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് ശമനമായി ഇന്നലെ രാത്രി മുതൽ മഴ വിട്ടു നിൽക്കുകയാണ്

ഉളി ക്കൽ നടുവിൽ പഞ്ചായത്തുകളിലായി ഇന്നലെ ഒൻപതിടങ്ങളിൽ ഉരുൾപ്പൊട്ടി

ബാവലിപ്പുഴ ചീങ്കണ്ണിപ്പുഴ എന്നിവ കരകവിഞ്ഞ് ഒഴുകുകയാണ്

ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ പമ്പാ ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലാഭരണകൂടം റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു

ജില്ലയിൽ ഇതു വരെ മൂന്നു പേർ പുഴകളിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങ ളിലേക്കും ഒരാഴ്ച്ചത്തേക്ക് പ്രവേശനം നിരോധിച്ചു മലവെള്ളപ്പാച്ചി ലിൽ മലമ്പുഴയിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ തകർന്നതിനെ ത്തുടർന്ന് പാലക്കാട് നഗരത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെ ടും ഭാരതപ്പുഴയിൽ വെള്ളം പട്ടാമ്പിപ്പാലത്തിനു ഒപ്പം എത്തിയ തിനെ തുടർന്ന് ഇന്നലെ രാത്രി ഇതുവഴിയുള്ള ഗതാഗതത്തിനും നിയ ന്ത്രണം ഏർപ്പെടുത്തി

പാലക്കാട് കഞ്ചിക്കോട് വേലഞ്ചേരിക്കുന്നിൽ രാത്രിയിലുണ്ടായ ഉരുൾപ്പൊട്ടലിൽ തകർന്ന പാലക്കാട് കോയമ്പത്തൂർ ബി ലൈൻ റെയിൽവേ ട്രാക്ക് അറ്റകുറ്റപണിക്കായി എത്തിയ ട്രെയിൻ പാളം തെറ്റി ആർക്കും പരിക്കില്ല രാത്രി വൈകി ഗതാഗത സംവിധാനം പുനസ്ഥാപിച്ചു

വൃഷ്ടി പ്രദേശത്ത് രാത്രിയിലും മഴ തുടരു ന്നതിനാൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരുമെന്ന് അധികൃ തർ അറിയിച്ചു പമ്പ നദിയിലെ ഡാമുകൾ തുറന്നതിനാൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ കാർത്തികപ്പള്ളി താലൂക്കുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയ റി

മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ മഴക്ക് ഇന്നലെ രാത്രി അൽപം ശമനമുണ്ടായി

ഉരുൾപ്പൊട്ട ലിൽ കാണാതായ ചാലിയാർ പഞ്ചായത്തിലെ എരുമമുണ്ട ചെട്ടി യാംപാറ കോളനിയിലെ സുബ്രഹ്മണ്യനു വേണ്ടി തിരച്ചിൽ തുടരുക യാണ് ് ശക്തമായ കാലവർഷത്തെത്തുടർന്ന് വിവിധ ജില്ലകളിൽ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി നൽകി വ യനാട് പാലക്കാട് പത്തനംത്തിട്ട ജില്ലകളിൽ പൂർണമായും ഇടുക്കി യിൽ തൊടുപുഴ ഒഴികെ താലൂക്കുകളിലും ആണ് അവധി എറണാ കുളത്ത് കോതമംഗലം കുന്നത്ത്നാട് ആലുവ പറവൂർ താലൂക്കുക ളിലെയും കടമക്കുടി ഗ്രാമപഞ്ചായത്തിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും തൃശൂരിലെ ചാലക്കുടി താലൂക്കിലും മലപ്പുറം ജില്ലയിലെ നില മ്പൂർ ഏറനാട് താലൂക്കുകളിൽ എടവണ്ണ ഊർങ്ങാട്ടിരി അരീക്കോട് കീഴുപറമ്പ് പാണ്ടിക്കാട് കൊണ്ടോട്ടി താലൂക്കിലെ വാഴക്കാട് വാഴ യൂർ മുതുവല്ലൂർ പഞ്ചായത്തുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ക് കലക്ടർമാർ അവധി നൽകി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി മുക്കം ബാലുശ്ശേരി കു ന്ദമംഗലം നാദാപുരം കുന്നുമ്മൽ പേരാമ്പ്ര ഉപജില്ലക ളിലും കണ്ണൂർ ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപന ങ്ങൾക്കും അവധിയായിരിക്കും എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഐടിഐകളിൽ ഇന്നും നാളെയും പാലക്കാട് വയനാട് ജില്ലകളിൽ ഇന്നും നടത്താനിരുന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് മാറ്റിവെച്ചു പുതുക്കിയ തിയതി പിന്നീട് അറിയിക്കും പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് പത്തനം തിട്ട ജില്ലയിൽ സന്ദർശനം നടത്തും കേന്ദ്ര ആഭൃന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി എ

ധർമറെഡ്സിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘമാണ് ജില്ലയിലെത്തുന്നത് പട്ടികജാതി പട്ടിക വർഗക്കാർക്കെതിരായ അതിക്രമ് നിരോധന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി

ദേശീയ കായിക സർവ്വകലാശാലാ ബില്ലിനും രാജ്യസഭ ഇന്നലെ അംഗീകാരം നൽകി

പ്രവാസി ഇന്ത്യക്കാർക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ പക രക്കാരെ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഭേദഗതി ബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി അനുവദിക്കുന്ന ബില്ലിനാണ് ലോക്സഭ അംഗീകാരം നൽകി യത് വിദേശത്ത് കഴിയുന്ന ഇന്തൃക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ യിൽ പങ്കെടുക്കാൻ ബിൽ അവസരം നൽകുമെന്ന് കേന്ദ്രമന്ത്രി രവി ശങ്കർ പ്രസാദ് ബിൽ അവതരണ വേളയിൽ പറഞ്ഞു

പണം കൊടുത്ത് പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം പൊള്ളയായ പ്രചാ രണ വാഗ്ദാനങ്ങൾ തൂടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു മുത്തലാഖ് ബില്ലിൽ വരുത്തേണ്ട ഭേദഗതികൾക്ക് കേന്ദ്ര മന്ത്രി സഭ അംഗീകാരം നൽകി മുത്തലാഖിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നതുൾപ്പെടെ കാര്യങ്ങളിലാണ് ഭേദ ഗതിയെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വലിയു വിമാനങ്ങളുടെ സർവീസിന് വൈകാതെ അനുമതി നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു ന്യൂഡൽഹിയിൽ അറിയിച്ചു സൌദി അറേബ്യൻ എയർലൈൻസിന് വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നട ത്താൻ അനുമതി നൽകിയിട്ടുണ്ട് അടുത്ത വർഷം മുതൽ കരിപ്പൂ രിനെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായും നിശ്ചയിക്കും സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ വലിയ വിമാനങ്ങളുടെ സർവീ സിന് അനുമതി നൽകിയതിനെ തുടർന്നാണ് കേന്ദ്ര തീരുമാനം പുതുതായി നിർമ്മിച്ച കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം ഒക്ടോ ബർ ഒന്നിന് പ്രവർത്തനം തുടങ്ങുമെന്നും സുരേഷ് പ്രഭൂ അറിയി രാജ്യാന്തര സർവീസുകൾ ഒക്ടോബർ അവസാനത്തോടെ ന്നു